ഒരുമിച്ച് നിൽക്കണമെന്ന് പ്രധാനമന്ത്രി

കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിനുള്ള വന്ദേ ഭാരത് ദൌത്യത്തിന് ഇന്ന് തുടക്കം

രാജ്യം ഇന്ന് ബുദ്ധ പൂർണിമ ആഘോഷിക്കുന്ന വേളയിൽ നൽകിയ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വൃക്തമാക്കിയത്

ഈ പോരാട്ടം ക്ഷീണിച്ച് അവസാനിപ്പിക്കുന്നത് ഒന്നിനും പരിഹാരമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു

മാനുഷികതയിൽ ഊന്നിയു ബുദ്ധ ദർശനങ്ങളാണ് ഇന്തൃ ലോകത്തിന് നൽകുന്ന പാഠമെന്നൂം പ്രധാനമന്ത്രി പറഞ്ഞു

ദീനാനുകമ്പയും സ്നേഹവും സത്യവും നിറച്ച് സംഘർഷ രഹിതമായി മനുഷ്യരാശിയെ സേവിക്കാനുള്ള ബുദ്ധന്റെ സന്ദേശം പ്രചോദനകരമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു

ശ്രീബുദ്ധന്റെ ബോധനങ്ങൾ പിന്തുടരാനും ഐക്യബോധം ശക്തിപ്പെടുത്താനും ഈ ഉത്സവം പ്രചോദനമാകട്ടേയെന്നും രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു

ലോകരാജ്യങ്ങൾ ഒന്നായി നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ കോവിഡ് മഹാമാരിയിൽ നിന്ന് കരകയറാൻ സാധിക്കൂവെന്നും ബുദ്ധജയന്തി സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു ബുദ്ധന്റെ ജനനത്തേയും ജീവിതത്തേയും അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം നൽകിയ സന്ദേശങ്ങളിൽ നിന്നും നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാം ബുദ്ധ സന്ദേശങ്ങൾക്ക് എക്കാലത്തേക്കാളും പ്രാധാന്യം ഈ സാഹചര്യത്തിൽ വർദ്ധീക്കുകയാണ് മറ്റുള്ളവരോട് കരുതലും ഐകൃദാർഢ്യവും പ്രകൃടിപ്പിച്ചു് കൊണ്ട് ബുദ്ധ ജയന്തി ആഘോഷങ്ങളിൽ പങ്കുചേരാമെന്ന് അദ്ദേഹം പറഞ്ഞു

വെങ്കടപുരം ഗ്രാമത്തിന് സമീപത്തുള്ള ഒരു സ്വകാരൃ കമ്പനിയുടെ പ്ലാന്റിലാണു വാതക ചോർച്ചയുണ്ടായത്

ചോർച്ച അടച്ചു

സമീപത്തെ ഗ്രാമങ്ങൾ ഒഴിപ്പിക്കുകയാണ്

അടച്ചിട്ട ഫാക്ടറി ഇന്നലെയാണ് വീണ്ടും തുറന്നത് പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്

രണ്ടു രാജ്യങ്ങളും നേരിടുന്ന കോവിഡ് പ്രതിസന്ധികൾ ഇരു ഭരണാധികാരികളും ചർച്ച ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘനാളായി നിലനിൽക്കുന്നു ബ്സം കൂടുതൽ ശക്തമാക്കാനും തീരുമാനിച്ചു

മഹാരാഷ്ട്ര ഗുജറാത്ത് തെലങ്കാന എന്നിവിടങ്ങളിലും വിമാനങ്ങളിൽ നാട്ടുകാരെ എത്തിക്കും കൂടുതൽ വിവരങ്ങളുമായി സിനു

യിൽ നിന്ന് പത്തും ഖത്തറിൽ നിന്ന് രണ്ടും സൌദി അറേബൃയിൽ നിന്ന് ഏഴും വിമാനങ്ങളാണ് ഇന്തൃയിലേക്ക് സർവ്വീസ് നടത്തുന്നത് ഇതിനു പുറമേ അമേരിക്ക യുകെ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കും സമുദ്ര സേതു എന്ന പേരിൽ പ്രത്യേക ഒഴിപ്പിക്കൽ ദൌത്യത്തിന് ഇന്ത്യൻ നാവികസേനയും രൂപം നൽകിയിട്ടുണ്ട് ആദ്യഘട്ട ഒഴിപ്പിക്കലിനായി ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് കപ്പലുകൾ മാലദ്വീപിലേക്കും ഒരെണ്ണം ദുബായിലേക്കും പുറപ്പെട്ടു ആയിർത്തോളം പേരെ ആദ്യഘട്ടത്തിൽ നാട്ടിലെത്തിക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത്

അബുദാബിയിൽ നിന്ന് കൊച്ചിയിലും ദുബായിൽ നിന്ന് കോഴിക്കോട്ടുമാണ് പ്രവാസികളുമായി വിമാനങ്ങൾ എത്തുന്നത്

ആശുപത്രിയിലേയ്ക്ക് മാറ്റും

ഏഴാമത്തെ ദിവസം ഇവരും പി സി ആർ ടെസ്റ്റിനു വിധേയമാക്കും രോഗലക്ഷണുണ്ടെങ്കിൽ ആശുപത്രിയിലേയ്ക്ക് മാറ്റും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രവാസികൾ വിമാനത്താവളത്തിൽ എത്തുന്നതു മുതൽ പരിശോധിച്ച് ആവശ്യമുള്ളവർക്ക് മികച്ച ചികിത്സയും പരിചരണവും നൽകും ഇതിനുള്ള സൌകര്യമൊരുക്കുകുയും ജീവനക്കാരെ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു

പശ്ചിമ ബംഗാൾ സന്ദർശിച്ച മന്ത്രിതല സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം കോവിഡ് നിരീക്ഷണവും പരിശോധനയും നിർണയവും നടത്തുന്നത് ബംഗാളിൽ കുറവാണെന്ന് ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല പറഞ്ഞു

സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ജസ്റ്റിസിന്റെ യാത്രയയപ്പ് ചടങ്ങ് വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തുന്നത് ഭരണഘടനയാണ് ജഡ്ജിമാരുടെ വിശുദ്ധപുസ്തകമെന്ന് അദ്ദേഹം പറഞ്ഞു